കാസർക്കോട്ട് സിപിഐഎം പ്രവർത്തകൻ സിദ്ദീഖിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ പൊലീസ് കേസ്സെടുത്തു

മോട്ടോർ വാഹന ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും ഇന്ന് ഹിരോഷിമ ദിനം

ഗവർണർ പി സദാശിവം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രി പിണ റായി വിജയൻ മന്ത്രിമാർ പ്രതിപക്ഷനേതാവ് തുടങ്ങിയവർ നിയ മസഭാ സമുച്ചയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഉച്ചകഴിഞ്ഞ് പട്ടികജാതി പട്ടിക വർഗ്ഗങ്ങളുടെ ശാക്തീകരണം നേരിടുന്ന വെല്ലുവിളികൾ എന്ന ദേശീയ സെമിനാർ നടക്കും തിരുവനന്തപുരത്തു നിന്ന് വൈകിട്ട് കൊച്ചിയിലേക്ക് തിരി ക്കുന്ന രാഷ്ട്രപതി നാളെ രാവിലെ ബൊൾഗാട്ടി പാലസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായും കൂടി ക്കാഴ്ച നടത്തും

തൃശൂരിൽ നിന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം ഗുരുവായൂരിലെത്തും ക്ഷേത്ര ദർശനത്തിനുശേഷം കൊച്ചിയിലെത്തുന്ന രാഷ്ട്രപതി രണ്ടേമുക്കാലോടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് തിരിച്ചു പോകും തൃശൂർ സെന്റ് തോമസ് കോളെജിലെ രാഷ്ട്രപതിയുടെ ഉദ്ഘാടന വേദിയിൽ ബോംബ് വെയ്ക്കുമെന്ന് ഭീഷണിപ്പെടു ത്തിയ ആളെ പൊലീസ് പിടികൂടി

ഇന്ന് പുലർച്ചെ പൊലീസ്കൺട്രോൾ റൂമിലേക്ക് വിളിച്ചാണ് ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയത് മദ്യലഹരിയിലാണ് ഇയാൾ ഭീഷണി മുഴക്കിയതെന്ന് ചോദ്യം ചെയ്യലിൽ അറിയിച്ചതായി പൊലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ ഭീഷണിപ്പെടുത്തലിന് ക്രിമി നൽ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്

ജമ്മു കശ്മീ രിലെ സ്ഥിരം താമസക്കാർക്ക് പ്രത്യേക അവകാശങ്ങളും ഇതര സംസ്ഥാനക്കാർ സ്ഥലം വാങ്ങുന്നത് തടയുന്നതുമായ നിയമം റദ്ദാക്കണമെന്ന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിടുന്ന കാര്യ മാണ് മൂന്നംഗ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് ഇന്ന് മൂന്നംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എത്താത്തതി നാലാണ് കേസ് മാറ്റിയത് ബെഞ്ചിലെ അംഗ്രങ്ങളായ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും എ എം ഖാൻവിൽക്കറുമാണ് ഇന്ന് ഹർജികൾ പരിഗണിച്ചത് കാസർക്കോട്ട് സിപിഐഎം പ്രവർത്തകൻ സിദ്ദീഖിനെ കൊല പ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ പൊലീസ് കേസ്സെടു ത്തു ആർ എസ് എസ് പ്രവർത്തകൻ അശ്വത്തിനെതിരെയാണ് കേസെടുത്തത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോ ഗിച്ചതായി ജില്ലാ പൊലീസ് മേധാവി കാസർക്കോട്ട് അറിയിച്ചു പ്രതികൾ കർണാടകയിലേക്ക് രക്ഷപ്പെട്ടതായി സൂചനയുള്ളതി നാൽ അന്വേഷണം അവിടേക്കും വ്യാപിപ്പിച്ചതായി പൊലീസ് പറ ഞ്ഞു ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ സംഘമാണ് സിദ്ദിഖിനെ കുത്തിക്കൊലപ്പെടുത്തിയത്

മദ്യപാനത്തി നിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും സംഭവത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം ഒഴിവാക്കണമെന്നും അദ്ദേഹം കാസർക്കോട്ട് പറഞ്ഞു കൊലപാതകം നിഷ്ഠൂരമാ ണെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും ശ്രീധരൻ പിള്ള ആവശ്യപ്പെട്ടു

വൈകീട്ട് ആറുവരെയാണ് ഹർത്താൽ

ജോസഫ് എന്നി വർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും രാവിലെ പത്തരയ്ക്ക് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പുതിയ ജസ്റ്റി സുമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

കെ എസ് ആർ ടി സിയിലെ സംയുക്ത ട്രേഡ് യൂണിയനും സ്വകാര്യ ബസ് തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കും

നാളെ രാവിലെ താലൂക്ക് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും ഉണ്ടാ യിരിക്കും പാൽ പത്രം ആശുപത്രി എന്നിവയടക്കം അവശ്യസേവന ങ്ങളെയും പാക്കേജ് ടൂർ വാഹനങ്ങളെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്

വാഹ നപണിമുടക്ക് കാരണമാണ് സിറ്റിംഗ് മാറ്റിയത് പുതുക്കിയ തിയ്യതി പിന്നീട് അറിയിക്കും യുദ്ധക്കെടുതിയുടെ ഒടുങ്ങാത്ത വേദനയുടെ ഓർമ്മയിൽ ഇന്ന് ഹിരോഷിമ ദിനം

ഇന്ന് ലോകമെങ്ങും ദിനാചരണത്തിന്റെ ഭാഗമായി യുദ്ധത്തിനെതിരെ വിവിധ ബോധവത്കരണ പരിപാടികൾ നടക്കുകയാണ്

ആറു തവണ ലോകചാമ്പ്യന്മാരായ അർജന്റീ നയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് ലക്ഷ്ദ്വീപിൽ നിന്ന് മത്സ്യബന്ധനത്തിനു പോയ തൊഴിലാളി കളെ ഇതുവരെ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ തെരച്ചി ലിന് മത്സ്യതൊഴിലാളികളുടെ സഹായം ആവശ്യപ്പെട്ട് ലക്ഷദ്ധീപ് എം പി മുഹമ്മദ് ഫൈസൽ കേരള കർണാടക തമിഴ്നാട് മുഖ്യ മന്ത്രിമാർക്ക് കത്തയച്ചു മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും മീൻ പിടിക്കാൻ പോകുന്നവരുടെ സഹായമാണ് അഭ്യർത്ഥിച്ചത്

നാളെ മുതൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ ഹജ്ജ് ക്യാമ്പിൽ തിരക്ക് കണക്കിലെടുത്ത് സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും

ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ കോഴി ക്കോട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും

പ്രധാന ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ നിവേദനം പിന്നീട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും

കോഴി ക്കോട് എറണാകുളം ജില്ലകളിലും അപ്നാഘർ ഹോസ്റ്റലിനായി സ്ഥലമെടുത്തിട്ടുണ്ട് മഹാരാജാസ് കോളെജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊല പ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി അറസ്റ്റു ചെയ്തു നെട്ടൂർ സ്വദേശിയും ക്യാമ്പസ് ഫ്രണ്ട് എറണാകുളം ഭാരവാഹിയുമായ റജീബാണ് അറസ്റ്റിലായത് ഇയാളെ പൊലീസ് ചോദ്യം ചെയ്തു വരികയാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് റെയിൽവെ മേൽപ്പാലത്തിനു മുകളിൽ കെ എസ് ആർ ടി സി ബസ്സും മിനിലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർക്ക് പ്പരിക്ക് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ കാപ്പി മലയിൽ എസ്റ്റേറ്റ് ജീവനക്കാരൻ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി

മൃതദേഹത്തിനടുത്തു നിന്ന് നാടൻതോക്ക് കണ്ടെടുത്തിട്ടുണ്ട് സംഭവത്തിൽ പൊലീസ് അന്വേഷണം തുട ങ്ങി കാണാതായതിനെ തുടർന്ന് പൊലീസ് നടത്തിയ അന്വേഷ ണത്തിൽ കണ്ടെത്തിയ കോട്ടക്കൽ സ്വദേശി ആതിരയെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും

വ്യാജരേഖകൾ ചമച്ച് കരമണ്ണ് കടത്താൻ പാസ് അനുവദിച്ച കേസിൽ ഒന്നാം പ്രതി മുൻ ജിയോളജിസ്റ്റ് ഡോ എസ് സജികു മാറിനെ അറസ്റ്റു ചെയ്തു ഒളിവിലായിരുന്ന ഇയാളെ എറണാകു ളത്തു നിന്നാണ് പ്രത്യേക അന്വേഷണസംഘം പിടികൂടിയത്

ഇതിനായി തയാറാക്കിയ അല്ലെൻമെന്റ് എസ്റ്റിമേറ്റും കരട് സ്കെച്ചും പ്രകാരമാണ് ഹൈവേ ജംഗ്ഷൻ മുതൽ റോഡ് അളന്നു തുടങ്ങിയത് സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ കീഴിലെ പോളിടെക്നിക്കുകളിൽ ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് അവസാന സ്പോട്ട് അഡ്മിഷൻ മറ്റന്നാൾ നടക്കും നേരത്തെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കിട്ടാത്തവർക്കും ബുധനാഴ്ചത്തെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം കേരള സർവകലാശാലയ്ക്കു കീഴിലെ കോളേജുകളിൽ ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ഇന്ന് നടക്കും

നോർക്ക റൂട്ട്സിന്റെ തിരുവനന്തപുരം ഓഫീസിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഉണ്ടാ യിരിക്കുന്നതല്ലെന്ന് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനത്ത് ഒരു മാസത്തെ ആടുവസന്ത നിയന്ത്രണ പദ്ധ തിക്ക് ഇന്ന് തുടക്കമാകും ആടുകളെയും ചെമ്മരിയാടുകളെയും ബാധിക്കുന്നതും പെട്ടെന്ന് പടരുന്നതുമായ വൈറസ് രോഗമാണ് ആടുവസന്ത